മാതൃ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സമാനതകളില്ലാത്ത ധീരതയും അർപ്പണബോധവും ആണ് ഇന്ത്യൻ സൈനികർ പ്രക്ടിപ്പിച്ചതെന്ന് പ്രധാ്റ്റമന്ത്രി നരേന്ദ്ര മോദി

സ്ഥിരീകരിച്ചു

സാഹചര്യം ഗുരുതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ശതമാനത്തിലേക്ക് കേന്ദ്ര കൃാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി

കോവാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചതായി ഐ

വന്ദേ ഭാരത് ദൌതൃത്തിന്റെ നാലാംഘട്ടത്തിന് തുടക്കം

ലഡാക്കിലെ ലേയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വിശദംശങ്ങളുമായി പ്രിയരാജൻ വോയ്സ് ലഡാക്ക് സന്ദർശന വേളയിൽ നിമോയിൽ സൈനികരെ അഭിസംബോധന ചെയ്ത മോദി അവർ ജോലി ചെയ്യുന്ന പർവ്വതപ്രദേശങ്ങളിലെ സൈനിക പോസ്റ്റുകളെക്കാൾ ഉയരത്തിലാണ് അവരുടെ ധൈര്യം എന്ന് പറഞ്ഞു സൈനികർ പ്രകടിപ്പിച്ച ധീരത ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ചുള്ള സന്ദേശം ലോകത്തിനു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈനികരുടെ ധീര ബലിദാനത്തിന്റെ കഥകൾ രാജ്യത്തെ എല്ലാ വീടുകളിലും പ്രതിധനിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു

ലഡാക്കിലെ ഈ ഭൂമി ഇന്ത്യയുടെ കിരീടമാണെന്നും രാജ്യത്തിന് ധീരന്മാരായ നിരവധി പേരെ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ഓർമ്മിച്ചു

മാനവികതയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലഡാക്ക് ലെഫ്റ്റനന്റ് ഗവർണർ ആർ കെ മാത്തൂർ എം

ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതീപ്പ്ധാനമന്ത്രി വിലയിരുത്തി സംയുക്ത സൈനിക മേധാവി ജനറ്റൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം

ലഡാക്കിലെ വിദൂര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സൈനികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ശ്രീ അമിത്ഷാ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ സന്ദർശനം സൈനികർക്ക് പ്രചോദനമാകുമെന്നും സൈനികരുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണെന്നും രാജ്യരക്ഷാമന്ത്രി ട്വീറ്റ് ചെയ്തു സൈനികർക്ക് പിന്തുണയുമായി ലേ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു സായുധ സേനയ്ക്ക് കൂടുതൽ ധൈര്യം പകരാൻ പ്രധാനമന്ത്രിയുടെ ലേ സന്ദർശനം സഹായിക്കുമെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ഹോങ്കോങ് ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിലും ചൈന നടത്തിയ കടന്നുകയറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് ചൈനീസ് കുമ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇത് വെളിവാക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി കെയ്ലി മിക്ട് ഇനാനി പറഞ്ഞു

സംസ്ഥാനത്ത് സമ്പർക്കൃത്തിലൂടെയുള്ള രോഗബാധ വർദ്ധിക്കുകയാണ്

ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

സെക്രട്ടറിയേറ്റിലെ സുരക്ഷാ ജീവനക്കാരന് രോഗം സ്ഥിരീകരിച്ചതോടെ തലസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭാരത് ബയോടെക് അന്താരാഷ്ട്ര കമ്പനിയുമായി സഹകരിച്ചാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ഈ മാസം ഏഴോടെ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിക്കും

അതിനിടെ സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജൃത്തെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി കൃത്യമായ രോഗ നിർണ്ണയവും ചികിത്സയുമാണ് രോഗമുക്തി നിരക്ക് വർദ്ധിക്കാൻ സഹായകമാകുന്നതെന്ന് യോഗം വിലയിരുത്തി

എച്ച് ഐ

ഹൃദയസ്തംഭനത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം രണ്ടായിരത്തിലധികം ഗാനരംഗങ്ങൾക്ക് നൃത്തരൂപം ഒരുക്കിയിട്ടുണ്ട്

ഇതിനായി കരട് നിയമങ്ങൾ ത്യാറാക്കാൻ മന്ത്രാലയം പൊതു ജനങ്ങളിൽ നിന്നൂർ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ

മൊഹമ്മദ് ഇക്ബാൽ എന്നായാളെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ജെയ്ഷെ ഇ മൊഹമ്മദ് ഭീകരനുമായ മൊഹമ്മദ് ഉമർ ഫറൂഖിന് സഹായങ്ങൾ എത്തിച്ചതിനാണ് ഇയാൾ അറസ്റ്റിലായത്